ഓൺലൈൻ പരിശീലനത്തിന് ഇന്ന് തുടക്കം ഇന്ന് അന്താരാഷ്ട്ര സഹകരണദിനം

രോഗ്യ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്തിട് എറണാകുളത്തും കൂടുതൽ നിയന്ത്രണങ്ങൾ

മൂന്നര ലക്ഷം സന്നദ്ധ പ്രവർത്തകരാണ് സേനയിൽ അംഗമായിട്ടുള്ളത്

ദുരന്തകാലത്ത് അതിജീവനത്തിന്റെ പാതയിലേക്ക് കേരളത്തെ നയിക്കാൻ സഹകരണ മേഖല വഹിച്ച പങ്ക് നിസ്തുലമാണെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു

ഇവരുടെ സ്രവപരിശോധന ഇന്ന് നടത്തും തിരുവനന്തപുരത്ത് പൊലീസുകാരന് കോവിഡ് ബാധിച്ചത് സമരക്കാരിൽ നിന്നാവാമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പൊലീസുകാരൻ എല്ലാദിവസവും സമരക്കാരെ നിയന്ത്രിച്ച ആളാണ് വീട്ടുകാർക്കോ എ

ക്യാംപിലെ മറ്റുമറ്റു പൊലീസുകാർക്കോ ഇതുവരെ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോടു പറഞ്ഞു

ഇതിന്റെ ഭാഗമായി എറണാകുളത്തെ ചമ്പക്കര മാർക്കറ്റിൽ പൊലീസ് മിന്നൽ പരിശോധന നടത്തി മാസ്ക്ക് ധരിക്കാതെയും സാമൂഹിക അകലം പാലിക്കാതെയും മാർക്കറ്റിൽ കണ്ട നിരവധി പേരെ പൊലീസ് കസ്റ്റഡിയിലെടുത്തു

മാർക്കറ്റിൽ സാമൂഹിക അക്കലം പാലിക്കുന്നില്ല എന്ന പരാതിയെ തുടർന്നായിരുന്നുറപ്പൂരി്ശോധന പൊലീസിന്റെയും കോർപ്പറേഷൻ അധികൃത്രുടെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന

മത്സ്യത്തൊഴിലാളിയുടെ ഭാര്യയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണിത് പ്രധാന വ്യാപാര കേന്ദ്രമായ ബ്രോഡ്വേ അടക്കം എറണാകുളം മാർക്കറ്റും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്

പൊന്നാനി എടപ്പാൾ വട്ടംകുളം മാറഞ്ചേരി ആലങ്കോട് സെന്ററുകളിൽനിന്നായി ആയിരത്തോളം പേരുടെ സാമ്പിളുകളാണ് ശേഖരിച്ചത് സാമ്പിൾ ശേഖരിച്ച് അതിവേഗം ഫലമറിയാനാകുന്ന ആന്റിജൻ പരിശോധന ഇന്ന് മുതൽ പൊന്നാനി താലൂക്കിൽ നടക്കും

ഇദ്ദേഹം തലശ്ശേരിയിലെ ക്വാറന്റൈൻ കേന്ദ്രത്തിലായിരുന്നു

ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം

ആദ്യമായാണ് ഒരു ദിവസം ഇത്രയും പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നത്

രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്തു ലോകം ഇന്ന് അസാധാരണ വെല്ലുവിളികൾ നേരിടുകയാണെന്നും ബുദ്ധന്റെ ആദർശങ്ങളിലൂടെ ഇതിന് പരിഹാരം കാണാൻ ശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ജോസ് കെ മാണി യു ഡി എഫിൽ നിന്നും പുറത്തായ സാഹചര്യത്തിൽ അടുത്ത രാഷ്ട്രീയ നിലപാട് ചർച്ച ചെയ്യാനായി കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ബുധനാഴ്ച സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരും കമ്മിറ്റിക്കുശേഷം ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ജോസ് കെ മാണി കോട്ടയത്ത് പറഞ്ഞു

ജെ പി മുന്നണിയെ പരാജയപ്പെടുത്താൻ ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് യ ഡി

ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ

പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

എഫും തയ്യാറാവുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ഐ ടി പരിശോധനയ്ക്കെത്തും ബംഗളൂരുവിൽ നിന്നുള്ള വിദഗ്ദ്ധരും പങ്കുചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി

പല്ലാവൂർ വാദ്യകലാ പുരസ്ക്കാര ജേതാവാണ്